ലക്ഷം കവിഞ്ഞു

പ്രവർത്തനമെന്ന് കേന്ദ്ര ആർോഗൃമന്താലയം

കേരളത്തിൽ നാളെ മുതൽ കെ എസ് ആർ ടി സി ന് ജില്ലാന്തര സർവ്വീസ് ആരംഭിക്കും

ഉം പുൻ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുന്നു

വൈറസിന്റെ ഉറവിടവും വ്യാപനവും സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തുമെന്ന് ലോകാരോഗ്യ സംഘടന

ഹിമാചൽ പ്രദേശ് ഒഡീഷ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം അടുത്ത ദിവസങ്ങളിലായി വർദ്ധിച്ചിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജാഗ്രതയും ശക്തമായ പ്രതിരോധ മാർഗ്ഗങ്ങളുമാണ് ഈ നേട്ടത്തിന് കാരണം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നിരീക്ഷിക്കുന്നുണ്ട് മുൻകരുതൽ നടപടികൾ മികച്ച ഫലമാണ് നൽകുന്നതെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

സി എം ആർ

കൂടുതൽ സ്വകാര്യ ലാബുകൾക്ക് അനുമതി നൽകുന്നതിലൂടെ പരിശോധനകളുടെ എണ്ണ്ട് വർദ്ധിപ്പിക്കാനാണ് ഐ സി എം

ബസ് ട്രെയിൻ സർവ്വീസുകൾ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു

പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയതായി ഡൽഹി സർക്കാർ അറിയിച്ചു

രോഗബാധിതരുടെ അടിസ്ഥാനത്തിലാണ് സോണുകളായി തിരിച്ചതെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു

ബി

ബംഗ്ലാദേശിൽ നിന്നുള്ള പഴയ ദൃശ്യങ്ങളാണ് ഇവയെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ടിറ്ററിലൂടെ അറിയിച്ചു

ജില്ലകൾക്കുള്ളിൽ പൊതുഗതത്തിന് അനുമതി നൽകിയിട്ടുണ്ട്

എസ് ആർ ടി സി നാളെ മുതൽ ജില്ലകൾക്കുള്ളിൽ സർവ്വീസ് നടത്തുമെന്ന് മന്ത്രി ഏ

പരമാവധി ഹ്രസ്വദൂര സർവ്വീസുകളാണ് നടത്തുകൃ നാളെ രാവിലെ ഏഴ് മണിക്കാണ് സർവ്വീസ് ആരംഭിക്കുന്നത്

ഇരട്ടി നിരക്ക് വർധന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം

സൌദി അറേബ്യ യു

ഇ കുവൈറ്റ് കാലാലംപൂർ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രവാസികളെയാണ് നാട്ടിലെത്തിക്കുന്നത്

റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കും ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കുമുള്ള വിമാനങ്ങളിൽ മുന്നൂറോളം യാത്രക്കാരുാകും

കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

ചുഴലിക്കാറ്റ് ഭീഷണിയും പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കൂടുതൽ ് വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

സ്വർണ വില കുറഞ്ഞു